ക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ പ്രതികളുടെ പൊലീസ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും കാസർകോട് ദേശീയപാതയിലെ അടുക്കത്ത് വയലിൽ എൽ പി ജി ടാങ്കർ മറിഞ്ഞ് ഇന്ധന ചോർച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ ഗവൺമെന്റ് വൈമുഖ്യം കാണിക്കുകയാണെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ കശ്മീരിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ മരിച്ച യുവ സൈനികൻ

അയോധ്യ ഭൂമി തർക്കക്കേസിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വാദം കേൾക്കൽ ഇന്ന് പൂർത്തിയാക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്

് കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ പൊലീസ് റിമാന്റിൽ കഴിയുന്ന പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവ സാനിക്കും കാലാവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണസംഘം താമരശ്ശേരി കോടതിയിൽ അപേക്ഷ നൽകും പരാതിക്കാരനായ റോജോ തോമസിൽ നിന്ന് ഇന്നും മൊഴിയെടുക്കൽ തുടരുമെന്ന് പൊലീസ് അറിയി ച്ചു

അന്വേ ഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും എല്ലാ വിവരങ്ങളും പുറത്തുവര ട്ടെയെന്നും റോജോ പറഞ്ഞു പരാതി പിൻവലിക്കാൻ ജോളിയുടെ ഭാഗ ത്തുനിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു

കൂടത്തായി പൊന്നാമറ്റം ഭൂമി ഇടപാടിൽ മുൻ വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെ നാലുപേരുടെ മൊഴിയും ഇന്നലെ രേഖപ്പെടുത്തി ആവശ്യമെ ങ്കിൽ ഇന്ന് ഓഫീസുകളിൽ പരിശോധന നടത്തും ദ്യ തൃശൂർ കയ്പമംഗലം വഴിയമ്പലത്തെ പെട്രോൾ പമ്പുടമയെ കൊലപ്പെടുത്തിയ സംഘം പൊലീസ് പിടിയിലായതായി സൂചന കയ്പ മംഗലം സ്വദേശികൾ തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ട് പമ്പിൽ പിരിഞ്ഞുകിട്ടിയ തുക തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകമെ ന്നാണ് നിഗമനം തിങ്കളാഴ്ച രാത്രി കാറിൽ വീട്ടിലേക്ക് പോകുകയായി രുന്ന പമ്പുടമ കെ

തട്ടിയെടുത്ത കാർ മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവെ സ്റ്റേഷനു സമ്പീപം പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കണ്ടെത്തി

കാസർകോട് ദേശീയപാതയിലെ അടുക്കത്തു വയലിൽ എൽ പി ജി ടാങ്കർ ലോറി മറിഞ്ഞ് ഇന്ധന ചോർച്ചയുണ്ടായി

പൊലീസും ഫയർഫോഴ്സും ചോർച്ച താൽക്കാലികമായി നിയന്ത്രണവിധേയമാക്കി മംഗലാപുരത്തുനിന്ന് സാങ്കേതിക വിദഗ്ദ്ധർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപകടത്തെ തുടർന്ന് രാത്രി തന്നെ പരിസരവാസികളെ വീടുകളിൽനിന്ന് ഒഴിപ്പിച്ചു വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു മംഗലാപുരത്തുനിന്ന് തമിഴ്നാട്ടിലേക്ക് പോയ ടാങ്കറാണ് മറി ഞ്ഞത്

വിലയാധാരത്തിലെ വിലയോ സുപ്രീം കോടതി നിർദ്ദേശിച്ച പരമാവധി നഷ്ടപരിഹാരത്തുകയോ നഷ്ടപരിഹാരമായി നൽകാനാണ് ജസ്റ്റിസ് ബാലകൃഷ്ണൻ നായർ അധ്യക്ഷനായ സമിതിയുടെ നിർദ്ദേശം

ചെറു വള്ളി എസ്റ്റേറ്റ് പണം നൽകി ഏറ്റെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നട ത്തുന്ന നീക്കം പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം അരൂരിൽ മാധ്യമങ്ങ ളോട് പറഞ്ഞു എൻ എസ് എസിന്റെ ശരിദൂരം എൻ ഡി എയ്ക്ക് അനു കൂലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡിക്എഫും യു ഡി എഫും ബി ജെ പിയെ തോല്പിക്കാൻ യോജിച്ച് പ്രവർത്തിക്കുകയാണെന്നും കുമ്മനം ആരോപിച്ചു ബി ജെ പിക്കെതിരെ പൊതുസമൂഹത്തിൽ അനാവശ്യ ഭയമുണ്ടാ ക്കുന്ന നിലപാടാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ സ്വീകരി ച്ചിരിക്കുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു എന്നാൽ ഇതിനെ ചെറുത്തുതോൽപിക്കുന്നതിൽ പാർട്ടി മികച്ച നേട്ടം കൈവ രിച്ചതായി അദ്ദേഹം കോഴിക്കോട്ട് അവകാശപ്പെട്ടു ഇപ്പോൾ എല്ലാ വഴി കളും ബി ജെ പിക്കുമുന്നിൽ തുറന്നിരിക്കുകയാണ്

സി സി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പാർട്ടിയിൽ ചേർന്നതായും സംസ്ഥാന പ്രസിഡന്റ് വെളിപ്പെടുത്തി

യുവ സൈനികൻ കൊല്ലം ഇടയം ആലുംമൂട്ടിൽ കിഴക്കതിൽ അഭിജിത്തിന്റെ ഭൌതിക ശരീരം കേരളത്തിൽ എത്തിച്ചു

പാങ്ങോട് മിലിട്ടറി ആശുപത്രിയിൽ സൂക്ഷിച്ചി രിക്കുന്ന ശരീരം രാവിലെ സ്വദേശമായ അഞ്ചൽ ഇടയത്തേയ്ക്ക് കൊണ്ടുപോകും

സ്കൂളിൽ പൊതു ദർശനത്തിന് വയ്ക്കും

ജി സർവകലാശാല മാർക്ക് ദാന വിഷയത്തിൽ മന്ത്രി കെ

ജലീലിനെതിരെ അന്വേഷണമാവശ്യപ്പെട്ട് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഗവർണറെ കാണും ഇക്കാരൃത്തിൽ നിഷ്പക്ഷ അന്വേ ഷണത്തിലൂടെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു

സർവകലാശാലയ്ക്കുപുറമെ സാങ്കേതിക സർവകലാശാലയിലും ക്രമക്കേട് നടന്നതായും ചെന്നിത്തല ഇന്നലെ കുറ്റപ്പെടുത്തിയിരുന്നു അതിനിടെ മാർക്ക്ദാന വിഷയത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസിനോട് ഉന്നത് വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷാ ടൈറ്റസ് വിശുദീകരണം തേടി

സമിതി അധ്യക്ഷൻ രാജ്യരക്ഷാ് മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസ തിയിലായിരിക്കും യോഗം

കൊൽക്കത്തയിൽ ലോകകപ്പ് യോഗൃതാ ഫുട്ബോളിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം സമനിലയിൽ പിരിഞ്ഞു അനായാസ വിജയം പ്രതീ ക്ഷിച്ച ഇന്ത്യക്കെതിരെ ആദ്യപകുതിയിൽ ബംഗ്ലാദേശ് താരം സാദുദ്ദീനാണ് ഗോൾ നേടിയത് കളി തീരാൻ നിമിഷങ്ങൾ ശേഷിക്കേ ഇന്ത്യൻതാരം ആദിൽഖാൻ ഗോൾ തിരിച്ചടിച്ചു മൂന്ന് മത്സരത്തിൽ നിന്ന് രണ്ടുപോയന്റ് മാത്രം നേടിയ ഇന്തൃയുടെ ലോകകപ്പ് യോഗൃതാ മോഹത്തിന് സമനില തിരിച്ചുടിയായി

ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ലോക ചാമ്പ്യൻ പി

പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻതാരം സായ്പ്രണീത് മുൻലോക ചാമ്പ്യൻ ചൈനയുടെ ലിൻഡാനെ അട്ടിമറിച്ചു

ഇന്ന് തിരുവ നന്തപുരം മുതൽ വയനാട് വരെ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാ പിച്ചു നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിലും വയനാട്ടിലും യെല്ലോ അലർട്ട് ഉണ്ടായിരിക്കും തുലാവർഷം സംസ്ഥാനത്ത് ഇന്നോ നാളെയോ ആരംഭിച്ചേക്കുമെന്നാണ് കാലാവസ്ഥാ വിലയിരുത്തൽ

ളിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ ഷട്ടറുകൾ തുറക്കുമെന്ന് അധികൃതർ അറി യിച്ചു പോത്തുണ്ടി ഡാമിന്റെ ഷട്ടറുകൾ രാവിലെ തുറക്കും മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകളും ആവശ്യാനുസരണം തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കും മഴ തുടർന്നാൽ മീങ്കര ചുള്ളിയാർ ഡാമുകളും തുറന്നേക്കുമെന്ന് മുന്നറി യിപ്പുണ്ട്

ക്കുന്ന സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാ പന സമ്മേളനം വൈകിട്ട് കൊല്ലത്ത് മന്ത്രി എ

ചടങ്ങിൽ വാത്സല്യനിധി ഗോത്ര വാത്സല്യനിധി സർട്ടിഫിക്കറ്റു കൾ മന്ത്രി ജെ മെഴ്സിക്കുട്ടിയമ്മ വിതരണം ചെയ്യും

ലഭ്യമാക്കാൻ പതിറ്റാണ്ടുകളായി ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ലക്ഷ്യം നേടി യെടുക്കാനായിട്ടില്ല എഴുപത് കോടിയിലധികം ആളുകൾ ഇന്നും പട്ടിണി യിലാണ് പോഷണക്കുറവ് മൂലം ഓരോ വർഷവും അഞ്ച് ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ അഞ്ചു വയസ്സെത്തുംമുമ്പ് മരിക്കുന്നുവെന്നാണ് കണക്ക്

ഗ്രഹണ ദിവസം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സൌരപഠന ശാസ്ത്രജ്ഞർ കല്പറ്റയിലെത്തും

് മൈസൂരിൽ നിന്ന് സ്വർണം വിറ്റ പണവുമായി

യായിരുന്ന രണ്ടുപേരെ വയനാട് മീനങ്ങാടി കുട്ടിരായീൻ പാലത്തിന് സമീപം വാഹനമിടിപ്പിച്ച് പണം കവരാൻ ശ്രമിച്ച് സംഘത്തെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു

വയോജന ട്രിബ്യൂണൽ കേസുകൾ തീർപ്പാക്കുന്നതിലെ കാല താമസം ഒഴിവാക്കണമെന്നും വയോജനങ്ങളെകൂടി ദോഷകരമായി ബാധി ക്കുന്ന പട്ടയപ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നും സീനിയർ സിറ്റി സൺസ് ഫ്രന്റ്സ് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കിയിൽ ആവ ശ്യപ്പെട്ടു

മടക്കയാത്രയും ഷൊർണ്ണൂരിൽ അവസാനിക്കും എറണാകുളം പാലക്കാട് എറണാകുളം മെമു സർവീസുകൾ ഈ അഞ്ചുദിവസങ്ങ ളിലും റദ്ദാക്കിയതായും റെയിൽവെ അറിയിച്ചു

കണ്ണൂർ ആകാശവാണിയും മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയും കണ്ണൂർ ജില്ലയിലെ കോളേജുകളിൽ സംഘടിപ്പിക്കുന്ന കാൻ കിസ് പ്രശ്നോത്തരി ഇന്നും തുടരും മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലും ഇരിട്ടി എം